നാളത്തെ ഹൌഡി മോഡി പരിപാടിക്ക് ഒരുക്കങ്ങൾ അവസാനം ഘട്ടത്തിൽ മോട്ടോർ വാഹന നിയമ ലംഘനങ്ങൾക്ക് ഈടാ ക്കുന്ന പിഴത്തുക കുറയ്ക്കുമെന്ന് മന്ത്രി എ കെ ശശീ ന്ദ്രൻ

ശിവഗിരിയിലെ സമാധി സമ്മേളനം കേന്ദ്രഹസമന്ത്രി ആർ

നാളത്തെ ഹൌഡി പരിപാടി ഒരു വിദേശ ഭര ണാധികാരിക്ക് അമേരിക്കൻ ഗവൺമെന്റ് നൽകുന്ന ഏറ്റവും വലിയ ബഹുമതിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും മൂന്നുമണി ക്കൂർ പരിപാടിയിൽ പങ്കെടുക്കും ഇതാദൃമായാണ് അമേരി ക്കൻ പ്രസിഡന്റ് മറ്റൊരു രാജ്യത്തെ പ്രധാനമന്ത്രിയുടെ ചട ങ്ങിൽ പങ്കെടുക്കുന്നത്

സ്വച്ച്ഭാരത് അഭിയാന് തുടക്കമിട്ട നരേ ന്ദ്രമോദിക്ക് ബിൽ ആന്റ് മിലിൻഡ ഗേറ്റ്സ് ഫൌണ്ടേഷൻ പ്രഖ്യാപിച്ച ആഗോള പുരസ്കാരവും അദ്ദേഹം ഏറ്റുവാങ്ങും കേന്ദ്ര മോട്ടോർവാഹന നിയമ ഭേദഗതിയുടെ അടിസ്ഥാ നത്തിൽ നിയമലംഘനങ്ങൾക്ക് ഈടാക്കുന്ന പിഴത്തുക കുറയ്ക്കുമെന്ന് മന്ത്രി എ

ശശീന്ദ്രൻ തിരുവനന്തപു രത്ത് അറിയിച്ചു

പിഴയായി ഈടാക്കേണ്ട തുക തീരുമാനിക്കാൻ ഗതാഗത സെക്രട്ടറിയെ യോഗം ചുമതല പ്പെടുത്തി

പാലാ നിയമസഭാ ഉപതിരഞ്ഞെടുപ്പിന് ഇനി മണിക്കൂ റുകൾ മാത്രം

മൂന്ന് മുന്നണികളും പരസ്യ പ്രചാരണം ഇന്നലെ അവസാനിപ്പിച്ചതിനെത്തുടർന്ന് ഇന്നും നാളെയും നിശബ്ദ പ്രചാരണമാണ്

എഫ് സ്ഥാനാർത്ഥി ജോസ് ടോമും എൽ

എ ഫ് സ്ഥാനാർത്ഥി മാണി സി കാപ്പനും എൻ

എ സ്ഥാ നാർത്ഥി എൻ ഹരിയും ഇന്ന് എസ്

പി ശാഖാ യോ ഗങ്ങൾ സംഘടിപ്പിക്കുന്ന സമാധിദിന ചടങ്ങുകളിൽ പങ്കെ ടുക്കും

എഫ് കെ

മാണിയോട് കാണിച്ച ക്രൂര തയ്ക്ക് പാലായിലെ വോട്ടർമാർ മറുപടി പറയുമെന്ന് എ ഐ

സി ജനറൽ സെക്രട്ടറി ഉമ്മൻചാണ്ടി പറഞ്ഞു പാലാരി വട്ടം മേൽപ്പാല അഴിമതിയ്ക്ക് കൂട്ടുനിന്നവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും പ്രശ്നത്തെ രാഷ്ട്രീയവൽക്ക രിക്കാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും അദ്ദേഹം പാലായിൽ പറ ഞ്ഞു അഴിമതിയെക്കുറിച്ച് മുഖ്യമന്ത്രി പറയുന്നത് കേട്ടാൽ ജന ങ്ങൾ ചിരിക്കുമെന്നും വിജിലൻസിനെ രാഷ്ട്രീയ പ്രതിയോ ഗികൾക്കെതിരായി ഉപയോഗിക്കരുതെന്നും ഉമ്മൻചാണ്ടി അഭിപ്രായപ്പെട്ടു

എം മാണിയോട് ദ്രോഹം ചെയ്തത് യു

എഫ് ആണെന്ന് സി

എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു

ബാർ കോഴക്കേസിൽ മാണിയെ ജയിലിൽ അടയ്ക്കാൻ രമേശ് ചെന്നിത്തല മുൻകൈ എടുത്തായും കോടിയേരി ആരോപിച്ചു

തിരഞ്ഞെടുപ്പ് വിജ്ഞാനം മറ്റന്നാൾ പുറപ്പെടുവിക്കും

കോട്ടയം ജില്ലയിൽ ചെലവഴിച്ച തുകയുടെ കണക്കും മുഖ്യമന്ത്രിയുടെ ഓഫീസ് പുറത്തുവിട്ടിട്ടുണ്ട് മദ്രാസ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് വിജയ

മദ്രാസ് ഹൈക്കോടതിയിൽനിന്ന് മേഘാലയ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസാക്കി സ്ഥലം മാറ്റിയതിൽ പ്രതി ഷേധിച്ചായിരുന്നു രാജി രാജ്യത്തെ ഹൈക്കോടതികളിലെ ഏറ്റവും സീനിയർ ജഡ്ജിമാരിൽ ഒരാളായ താഹിൽ രമ ണിയെ ചെറിയ ഹൈക്കോടതികളിൽ ഒന്നായ മേഘാലയ യിലേക്ക് മാറ്റിയത് വലിയ ചർച്ചയായിരുന്നു

മദ്രാസ് ഹൈക്കോടതിയിലെ മുതിർന്ന ജഡ്ജി വിനീത് കോത്താരിക്കാണ് ചീഫ് ജസ്റ്റിസിന്റെ താൽക്കാലിക ചുമതല സുപ്രീംകോടതയിൽ അഞ്ച് മുതിർന്ന ന്യായാധിപർ അംഗ ങ്ങളാകുന്ന സ്ഥിരം ഭരണഘടനാ ബഞ്ച് രൂപീകരിക്കും ഭര ണഘടനയുമായി ബന്ധപ്പെട്ട നിർണായകമായ നിയമ വ്യവ ഹാരങ്ങൾ പരിഗണിക്കാനാണ് സ്ഥരം സംവിധാനം രൂപീക രിക്കുന്നത് പുതിയ ഭരണഘടനാ ബഞ്ച് ഒക്ടോബർ ഒന്നിന് നിലവിൽ വരും

സൈനൃം ശക്തമായി തിരിച്ചടിച്ചുവെ ന്നാണ് റിപ്പോർട്ട് ഏറ്റുമുട്ടൽ തുടരുകയാണ് ചന്ദ്രയാൻ രണ്ട് ദൌതൃത്തിലെ വിക്രം ലാന്ററും പ്രഗ്യാൻ റോവറും വീണ്ടും പ്രവർത്തനസജ്ജമാക്കാമെന്ന പ്രതീക്ഷ അവസാനിച്ചു

ചന്ദ്ര നിൽ ഇറക്കുന്നതിനിടെ ഓർബിറ്ററുമായി ബന്ധം നഷ്ടപ്പെട്ട തിനെ തുടർന്ന് ലാൻ്റർ ദൌത്യം പരാജയപ്പെടുകയായിരുന്നു ഈമാസം ഏഴിന് ചന്ദ്രോപരിതലത്തിൽ സാവധാനം ഇറങ്ങേ ണ്ടിയിരുന്ന ലാന്റർ അവസാന നിമിഷം ഉപരിതലത്തിൽ ഇടി ച്ചിറങ്ങിയത് മൂലമാണ് ദൌതൃത്തിലെ ഈ ഘട്ടം പരാജയപ്പെ ട്ടത്

ഡി

ഉച്ചനീചത്വ ങ്ങൾക്കെതിരെയും ജാതി മതഭ്രാന്തിനെതിരെയും സാംസ്കാ രിക പോരാട്ടം നടത്തിയ ഗുരുവിന്റെ സ്മാധിദിനം ഭക്തി നിർഭരമായ ചടങ്ങുകളോടെയാണ് നാടെങ്ങും ആചരിക്കു ന്നത് ശിവഗിരിയിൽ വിശേഷാൽ പൂജകളടക്കം പ്രത്യേക ചട ങ്ങുകൾ പുലർച്ചെ ആരംഭിച്ചു സമാധി സമ്മേളനം കേന്ദ്ര സഹമന്ത്രി ആർ

കോഴിക്കോട് ശ്രീകണ്ഠേശ്വര ക്ഷേത്രയോഗത്തിന്റെ ആഭി മുഖ്യത്തിൽ ഉച്ചകഴിഞ്ഞ് ഗുരുവിഹാറിൽ സമൂഹ പ്രാർത്ഥ നയും തുടർന്ന് സമാധിദിന സമ്മേളനവും നടക്കും ലോക ബോക്സിംഗ് കിരീടത്തിനായി അമിത് പൻഘൽ ഇന്ന് ഗോദയിലിറങ്ങും ഉസ്ബെക്കിസ്ഥാൻ താരമാണ് പൻഘലിന്റെ എതിരാളി

മുത്തൂറ്റിനെ സംസ്ഥാന ഗവൺമെന്റ് ബഹിഷ്കരിക്ക ണമെന്ന് ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാൻ വി എസ് അച്യുതാനന്ദൻ പറഞ്ഞു രാജ്യത്തെ നിയമം പാലിക്കാത്ത സ്ഥാപനത്തെ എല്ലാ തലത്തിലും ബഹിഷ്കരിക്കണം മുത്തൂറ്റിലെ തൊഴിലാളി വിരുദ്ധതയെ ഗവൺമെന്റ് ശക്ത മായി നേരിടണമെന്നും മൂഴുവൻ പ്രവർത്തനങ്ങളും പ്രത്യേക സംഘം അന്വേഷിക്കണമെന്നും വി എസ് തിരുവ നന്തപുരത്ത് പറഞ്ഞു

പ്രതി നിധി സമ്മേളനം മറ്റന്നാൾ മന്ത്രി കെ

സുഹൃദ് സമ്മേളനം മന്ത്രി ടി

സംസ്ഥാനത്തെ സ്കൂളുകളിൽ നടപ്പാക്കുന്ന ഗോശ്രീ അറ്റ് സ്കൂൾ പദ്ധതിക്ക് കണ്ണൂർ ജില്ലയിൽ തുടക്കമായി വിദ്യാർത്ഥി കളെ മൃഗസംരക്ഷണ മേഖലയിലേക്ക് ആകർഷിക്കുന്നതിനും മൃഗപരിപാലനത്തിന് പ്രേരിപ്പിക്കുന്നതിനുമായാണ് പദ്ധതി

ആർ മെമ്മോറിയൽ ഹയർ സെക്കന്ററി സ്കൂളി ലാണ് പദ്ധതിക്ക് തുടക്കം കുറിച്ചത് കൊച്ചി കപ്പൽശാലയിൽ നാവികസേനയ്ക്കുവേണ്ടി നിർമ്മിക്കുന്ന വിമാനവാഹിനി കപ്പൽ ഐ

ഇത് സംബന്ധിച്ച റിപ്പോർട്ട് സിറ്റി പൊലീസ് കമ്മീഷണർ വിജയ് സാഖറെ കമ്മീഷണർക്ക് കൈമാറി

മലപ്പുറം വേങ്ങര സ്വദേ ശികളായ മുഹമ്മദ് ് ഷെഫീഖ് അബ്ദുൽ ഖാദർ എന്നിവ രാണ് റെയിൽവേ പൊലീസിന്റെ പിടിയിലായത്

തൃശൂർ സ്വദേശി രാകേഷ് മലപ്പുറം സ്വദേശി സുനീർ അലി എന്നിവരാണ് പിടിയിലായത് രാകേഷ് മുമ്പും കള്ള നോട്ട് കേസിൽ പ്രതിയായിരുന്നു ഇവരെ അല്പസമയത്തി നകം കോടതിയിൽ ഹാജരാക്കും

ടെക് പരീക്ഷയിൽ തോറ്റ വിദ്യാർത്ഥിയെ ജയിപ്പി ക്കാൻ മന്ത്രി ഡോ

ടി ജലീൽ പ്രത്യേക സമിതിയെ നിയോഗിച്ചതിനെതിരെ സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി ഗവർണർക്ക് പരാതി നൽകി കൊല്ലം ടി

എം എഞ്ചിനീയറിംഗ് കോളേജിലെ മെക്കാനിക്കൽ എഞ്ചിനീയ റിംഗ് വിദ്യാർത്ഥി ശ്രീഹരിക്കുവേണ്ടി മന്ത്രി ഇടപെട്ടെന്നാണ് ആരോപണം അതേസമയം ബി ടെക് വിദ്യാർത്ഥിയുടെ പ്രീക്ഷാ മൂല്യ നിർണ്ണയത്തിനായി പ്രത്യേക സമിതിയെ നിയോഗിച്ചത് ചട്ട പ്രകാരമാണെന്ന് മന്ത്രി കെ

മാനുഷിക പരിഗണന കണക്കിലെടുത്താണ് താൻ വിഷയത്തിൽ ഇട പെട്ടതെന്നും ഈ വിഷയത്തിൽ താൻ ഇടപെട്ടില്ലായിരുന്നെ ങ്കിൽ അത് നീതിനിഷേധമാകുമായിരുന്നുവെന്നും അദ്ദേഹം തിരുവന്തപുരത്ത് പറഞ്ഞു ഫോർട്ട് കൊച്ചി വൈപ്പിൻ റോറോ സർവീസ് തിങ്കളാഴ്ച സർവീസ് ആരംഭിക്കും രണ്ട് ഷെഡ്യൂൾ പ്രകാരമാണ് സർവീസ് നടത്തുക ഒന്നാം ഷെഡ്യൂൾ രാവിലെ ആറു മുതൽ രാത്രി എട്ടു വരെയും രണ്ടാം ഷെഡ്യൂൾ രാവിലെ എട്ടര മുതൽ രാത്രി പത്തു വരെയുമാണ് സർവീസ് നടത്തുക കാസർകോട്ട് ദേശീയപാതയുടെ ശോചനീയാവസ്ഥ പരി ഹരിക്കണമെന്നാവശൃപ്പെട്ട് രാജ്മോഹൻ ഉണ്ണിത്താൻ എം

നിരാഹാര സമരത്തിന്റെ കാരണങ്ങൾ കാണിച്ച് പ്രധാനമന്ത്രിക്ക് കത്ത് നൽകിയിട്ടുണ്ടെന്നും പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തിയില്ലെങ്കിൽ കടുത്ത സമ രമാർഗവുമായി മുന്നോട്ടു പോകുമെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞു രാവിലെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല നാരങ്ങാനീര് നൽകിയാണ് ഉണ്ണിത്താന്റെ സമരം അവസാനിപ്പിച്ചത് കാലിക്കറ്റ് സർവകലാശാലയിലെ പട്ടികജാതി വിദ്യാർഥികളോട് ജാതിവിവേചനം ക്യാണിച്ചെന്ന പരാതിയിൽ ആരോപണ വിധേയരായ അധ്യാപകരോട് തിങ്കളാഴ്ച മുതൽ നിർബന്ധിത അവധിയിൽ പോവാൻ വൈസ് ചാൻസലർ ഡോക്ടർ കെ മുഹമ്മദ് ബഷീർ ഉത്തരവിട്ടു കാലിക്കറ്റ് യൂനിവേഴ്സിറ്റി കാമ്പസിലെ ബോട്ടണി വിഭാഗം ഗവേഷക വിദ്യാർഥികളാണ് അധ്യാപകരിൽനിന്ന് ജാതിവിവേചനം നേരിട്ടതായി പരാതി നൽകിയത് കണ്ണൂർ ആറളം ആദിവാസി പുനരധിവാസ മേഖലയിലെ തകർന്ന വളയംചാൽ തൂക്കുപാലം പുനർ നിർമ്മിച്ചു